പ്രധാനമന്ത്രിയ്ക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്തീൻ ചിറ്റ് വാർധ പ്രസംഗം ചട്ടലംഘനമല്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ

ലോക്സഭാ തിരഞ്ഞടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്ക് പ്രചാരണം ഊർജ്ജിതം

ഫോനി ചുഴലിക്കാറ്റ് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാവകുപ്പ്

തീവ്രവാദസംഘടന ഇസ്ലാമിക് സ്റ്റേറ്റിന് എതിരായ ആഗോളപോരാട്ടത്തിൽ പങ്കുചേരാൻ ശ്രീലങ്ക തയ്യാറാണെന്ന് പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ

രാജസ്ഥാൻ റോയൽസുമായുള്ള മത്സരം മഴമൂലം ഉപേക്ഷിച്ചു

ആരോപണത്തിൽ പറയുന്നതുപോലുള്ള ചട്ടലംഘനം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ലെന്ന് കമ്മീഷൻ വിലയിരുത്തി അതേസമയം ഗുജറാത്തിലെ ബി ജെ പി അധ്യക്ഷൻ ജിതുഭായി വാഗനിക്കെതിരെ കമ്മീഷൻ വിലക്ക് ഏർപ്പെടുത്തി

ഇത് രണ്ടാം തവണയാണ് അസംഖാനെതിരെ കമ്മീഷൻ വിലക്ക് ഏർപ്പെടുത്തുന്നത് നേരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ജയപ്രദക്കെതിരെ നടത്തിയ മോശം പരാമർശത്തിനാണ് കമ്മീഷൻ നടപടി എടുത്തത്

ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന ഉന്നതതലയോഗത്തിലാണ് ചർച്ച നടന്നത് തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ചില വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തത തേടാൻ തീരുമാനിച്ചു ജമ്മുകശ്മീരിൽ തുടർന്നുവരുന്ന രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ച് വിദഗ്ദ്ധ നിയമോപദേശം തേടാനും കമ്മീഷൻ തീരുമാനിച്ചു

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നത നേതാക്ക്ൾ കൂടുതൽ വിവരങ്ങളുമായി വി

അധികാരത്തിലിരുന്നപ്പോൾ ബി

പിയും സമാജ്വാദി പാർട്ടിയും സംസ്ഥാനത്തെ കൊള്ളയടിക്കുക യായിരുന്നെന്ന് ബരബംഗിയിലെ പൊതുയോഗത്തിൽ ശ്രീ

വികസനത്തിനായി രാജ്യത്തിന് ശക്തമായ ഒരു ഗവൺമെന്റ് ആവശ്യമാണെന്നും ബി ജെ പിക്ക് മാത്രമെ അതിന് സാധിക്കൂവെന്നും ബഹ്റിച്ചിൽ ശ്രീ

ജെ പി അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞു രാജസ്ഥാനിലെ ദൌസയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മധ്യപ്രദേശിലായിരുന്നു ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം

പ്രിയങ്കാഗാന്ധി അമേഠിയിൽ ഇന്നലെ നടന്ന റോഡ് ഷോയിൽ പങ്കെടുക്കുകയും തെരെഞ്ഞടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു

പി നേതാവ് മായാവതി ഭൌറാഹ്റയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു

ജെ

നേത്രാവ്വു കൂടിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിൽ ഇന്ന് രണ്ട് തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും മറ്റ് രാഷ്ട്രീയപാർട്ടികളുടെ പ്രമുഖ നേതാക്കളും ഇന്ന് സംസ്ഥാനത്ത് റോഡ് ഷോകളിലും റാലികളിലും പങ്കെടുക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നാദൃം അംബേദ്കർ നഗർ ജില്ലയിലെ മായാ ബസാറിൽ ബി ജെ

പിന്നീടദ്ദേഹം കൌശാംബി ജില്ലയിൽ നടക്കുന്ന തിരഞ്ഞെ ടുപ്പ് റാലിയിലും പങ്കെടുക്കുമെന്ന് ആകാശവാണി പ്രതി നിധി അറിയിക്കുന്നു കോൺഗ്രസ്സ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ബരാ ബംഗിയിലെ രാംനഗറിൽ പാർട്ടി സ്ഥാനാർത്ഥി തനൂജ് പുനിയ യ്ക്കായി വോട്ട് തേടും സിതാപൂർ ജില്ലയിലെ തിരഞ്ഞെടുപ്പ് യോഗങ്ങ ളിലും ശ്രീ

കോൺഗ്രസ്സ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി റായ്ബറേലിയിൽ പൊതുയോഗത്തിൽ സംബന്ധിക്കുകയും വൈകിട്ട് അമേഠിയിൽ റോഡ് ഷോ നടത്തു കയും ചെയ്യും

എസ്

സഖ്യത്തിന്റെ സംയുക്ത റാലിയിൽ പാർട്ടി അധ്യക്ഷരായ അഖിലേഷ് യാദവും മായാവതിയും പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും

റെഡ്നി രോഗബാധയെത്തുടർന്ന് മരണമടഞ്ഞു

ഹൈദ്രാബാദിലെ സ്വകാര്യ ആശു പത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്തും ദീർഘ നാളുകളായി ചികിത്സയിലായിരുന്നു

ജാതി വർഗം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അദ്ദേഹം മാധ്യമങ്ങളെയും ആഹാനം ചെയ്തു ന്യൂഡൽഹിയിൽ ഇന്നലെ ഒരു യോഗത്തിൽ സംബന്ധിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ കഴിവിന്റേയും സ്വഭാവ ശുദ്ധിയുടേയും അളവുകോലിൽ തീരുമാനിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

പുരിയ്ക്കും കേന്ദ്രപദയ്ക്കുമിടയിലായിരിക്കും ചുഴലിക്കാറ്റ് വീശുകയെന്ന് അറിയിപ്പിൽ പറയുന്നു ഇതിന്റെ പ്രഭാവത്തിൽ തൊട്ടടുത്ത ജില്ലകളായ ഗജപതി ഗൻജാം പുരി റായ്ഗഡാ കന്തമാൽ എന്നിവിടങ്ങളിൽ നാളെ ശക്തമായ മഴയുണ്ടാകുമെന്നും അറിയിപ്പുണ്ട് സ്ഥിതി കണക്കിലെടുത്ത് ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്പ്രീക്ടിച്ചതായി ഒഡീഷ ചീഫ് സെക്രട്ടറി അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി വി

റബ്ബർ ബോട്ടുകൾ ദുരിതാശ്വാസ സാമഗ്രികൾ ഡോക്ടർമാർ മുങ്ങൽ വിദഗ്ധർ എന്നിവയും ഭക്ഷണം വസ്ത്രം മരുന്നുകൾ കമ്പിളിപ്പുതപ്പുകൾ എന്നിവയും ഈ കപ്പലുകളിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു തമിഴ്നാട്ടിൽ അരക്കോണത്തെ ഐ

രജലി നാവികസേനാ വിമാനത്താവളത്തിലും ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തുള്ള ഐ

എസ് ദേഗയിലും നാവിക വിമാനങ്ങൾ ദുരന്ത സഹായ പ്രവർത്തനങ്ങൾക്ക് സജ്ജമായിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു

കടൽ പൊതുവേ പ്രക്ഷുബ്ദ്ധമാകാൻ ഇടയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ശ്രദ്ധിക്കണമെന്നും കടലിൽ പോയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് മടങ്ങണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു

ഞായറാഴ്ച വൈകുന്നേരമാണ് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡറിൽ നിന്ന് ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചതെന്ന് ശ്രീമതി സ്വരാജ് ട്വീറ്റ് ചെയ്തു

കൂടുതൽ വിവരങ്ങളുമായി വി ഗോപകുമാർ

എസിൽ നിന്നുള്ള ഭീക്ഷണി നേര്ട്ടുണ്ട്രിനായി രഹസ്യാന്വേഷണ വിവരങ്ങളും വൈദഗ്ദ്ധ്യവും അന്താരാഷ്ട്ര സമൂഹവുമായി പങ്കുവെ യ്ക്കുമെന്നും ശ്രീലങ്കൻ പ്രധാന്മന്ത്രീ വിക്രമസിൻഗെ അറിയിച്ചു

എസ് ഭീകരർ ഈസ്റ്റർ ദ്ദീനിത്തിൽ നടത്തിയ ബോംബാക്രമണം സംബന്ധിച്ച മുഖ്യവിവർങ്ങൾ ലഭ്യമായതായും അദ്ദേഹം അറിയിച്ചു സംഭവത്തിൽ ഇതിനകം നിരവധിപേരെ അറസ്റ്റു ചെയ്തതായും ഇനിയും അറസ്റ്റുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറ ഞ്ഞു ആക്രമണകാരികൾക്ക് ഐ

ഭീകരർ പരിശീലനം നൽകി യിരുന്നതായും ശ്രീലങ്കയിലെ ഭീകരവാദികൾക്ക് ഐ

എൽ ക്രിക്കറ്റിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടൂർണ മെന്റിൽ നിന്നും പുറത്തായി ഇന്നലെ മഴ മൂലം രാജസ്ഥാൻ റോയൽസുമായുള്ള മത്സരം ഉപേക്ഷിച്ചതിനെത്തുടർന്ന് ഇരു ടീമു കൾക്കും അഞ്ച് ഓവറാക്കി ചുരുക്കിയിരുന്നു

ഇതോടെ കളി ഉപേ ക്ഷിച്ച് ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതം പങ്കുവെച്ചു

ഇന്ന് ചെന്നൈയിൽ രാത്രി എട്ടിന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിംഗ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും

സായ് പ്രണീത് ശുഭങ്കർ ദേ ലക്ഷ്യ സെൻ എന്നിവർ മത്സ്രത്തിനിറങ്ങും

പ്രണോയ് സിംഗപ്പൂർ താരം ലോ കീൻ യൂവിനെ നേരിടും